മാണിക്ക് ചരമോപ്പച്ചാര്ം അർപ്പിച്ച് ആദ്യദിനം സഭ പിരിഞ്ഞു

സ്വാശ്രയ കോളേജ് ഫീസ് നിർണയ ബിൽ നാളെ സഭയുടെ പരിഗണനയിൽ വരും

മാണിയുടെ ് വിയോഗത്തിന് ശേഷം ചേർന്ന ആദ്യ നിയമസൂളി സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ പി

ജോസഫിന് സഭയിലെ മുൻനിരയിൽ സീറ്റ് നൽകി

ജോസഫിനെ സഭയുടെ മുൻനിരയിൽ ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മോൻസ് ജോസഫ് എം എൽ എ നേരത്തെ സ്പീക്കർക്ക് കത്ത് നൽകിയിരുന്നു കത്ത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയെന്ന് ശ്രീ ജോസ് കെ മാണി മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നാൽ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്ന നിലയിലുള്ള ചുമതലയാണ് താൻ നിറവേറ്റിയതെന്ന് മോൻസ് ജോസഫ് പ്രതികരിച്ചു